കോവിഡ് സ്ഥിതിഗതികൾ ്സംബന്ധിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി എ്ന്നിവരുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ചർച്ച നട്ടത്തി

അതിർത്തി തർക്കം പരിഹരിക്കാൻ സൈനിക നയതന്ത്ര തലങ്ങളിൽ ചൈനയുമായി ചർച്ച നടക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്

ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ് പുതിനെ മുംബൈയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയെന്ന് സംശയം

യോഗത്തിൽ ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കാബിനറ്റ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഉന്നതാധികാര സമിതികളിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നീതി ആയോഗ് അംഗവും അടിയന്തര മെഡിക്കൽ സേവനങ്ങളുടെ മേൽനോട്ട സമിതിയുടെ ചുമതലയുമുള്ള ഡോ

രാജ്യത്തെ മൂന്നിൽ രണ്ട് കേസുകളും അഞ്ച് സംസ്ഥാനങ്ങളിലാണെന്ന് യോഗം വിലയിരുത്തി വൻ നഗരങ്ങളിൽ കോവിഡ് കേസുകളുടെ ദൈനംദിന കുതിച്ചുചാട്ടം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പരിശോധനകളുടെയും കിടക്കകളു ടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നു കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങ ളുമായി കൂടിയാലോചിച്ച് അടിയന്തര ആസൂത്രണം നടത്താനും പ്രധാനമന്തി ആരോഗൃ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മഹാമാരി മുന്നിൽക്കണ്ടുള്ള മഴക്കാല തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്നും ശ്രീ

സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള മാന്നുദണ്ഡങ്ങൾ തയ്യാറാക്കാൻ നീതി ആയോഗ് അംഗം ഡോ

ഡൽഹിയിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ശ്രീ

തിരുവനന്തപുരത്ത് ഒന്നും തൃശൂർ ജില്ലയിൽ രണ്ടും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇടുക്കി ജില്ലയിലെ കുമളി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കാറഡുക്ക പള്ളിക്കര കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് പേരാവൂർ എന്നീ പ്രദേശങ്ങളാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ കാസർഗോഡ് ജില്ലയിലെ വോർക്കാടിയെ ഇന്ന് ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി

വീഡിയോ കോൺഫറൻസിംഗിലൂടെയുള്ള ജമ്മു ജനസംവാദ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജമ്മു കശ്മീരിന്റെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാ ണെന്നും രാജ്നാഥ് സിംഗ് വൃക്തമാക്കി

അതിർത്തി തർക്കം സംബന്ധിച്ച് സൈനിക നയതന്ത്ര തലങ്ങളിൽ ചൈനയുമായി ചർച്ച നടക്കുന്നുണ്ടെന്ന്ു ശ്രീ

ചർച്ചകളിലൂടെ തർക്കം പരിഹരിക്കൂർദ്രുള്ള ആഗ്രഹം ചൈന പ്രകടിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു

ഇന്ത്യൻ ക്രിക്കറ്റ് നായകനായിരുന്ന എം

ധോണിയുടെ ജീവിതത്തെ അധികരിച്ചുള്ള സിനിമയിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവച്ചു കേദാർനാഥ് ചിച്ചോർ എന്നിവ താരത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്

രണ്ട് സൈനികർക്ക് പരിക്കേറ്റു

അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന ധാരണയ്ക്ക് വിരുദ്ധമാണ് ഇപ്പോൾ നേപ്പാളിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരു തെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

പ്രവാസികൾ ഉള്ള രാജ്യങ്ങളിൽ ടെസ്റ്റ് കിറ്റുകളുടെ ലഭ്യത കേന്ദ്ര സർക്കാർ ഉറപ്പ് വരുത്തണം

സി ആർ ടെസ്റ്റ് നടത്തുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ റാപിഡ് ടെസ്റ്റിനു വേണ്ട സൌകര്യങ്ങൾ ഉറപ്പു വരുത്തണം കോവിഡ് പോസിറ്റീവായവരും രോഗമില്ലാത്തവരും ഒരുമിച്ചു യാത്ര ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണം

ഒൻപത് ജില്ലകളിൽ ന്റാളെയും ഏഴ് ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാഷിച്ചു് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് കേരള തീരത്ത് ശക്തമായ കാറ്റു വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു